വയനാട് കോഴിക്കോട് കണ്ണൂർ ഇടു ക്കി മലപ്പുറം ജില്ലകളിൽ ഉരുൾപൊട്ടി മേപ്പാടിയിൽ പത്തുപേരെ സൈനൃം രക്ഷപ്പെടുത്തി വടകര വിലങ്ങാട് മൂന്നുവീടുകൾ പൂർണ്ണമായും മണ്ണിനടി യിലായി പന്ത്രണ്ടുപേർ മഴക്കെടുതിയിൽ മരിച്ചു നാലു ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് സ്ഥിതി ഗുരുതരമെന്ന് മുഖ്യമന്ത്രി പിണറായിവിജയൻ

വിവിധ ജില്ലകളിലായി പിഞ്ചുകുഞ്ഞ് അടക്കം പന്ത്രണ്ടുപേർ മഴക്കെടുതിയിൽ മരിച്ചു ഇടുക്കി വയനാട് ജില്ലകളിൽ മൂന്നുപേർ വീതവും കണ്ണൂർ പാലക്കാട് തൃശൂർ മലപ്പുറം കാസർകോട് കോഴിക്കോട് ജില്ലകളിൽ ഓരോരുത്തരുമാണ് മരിച്ചത് വയനാട് മേപ്പാടി യിൽ ക്ഷേത്രവും ചർച്ചും ഏതാനും വീടുകളും വാഹനങ്ങളും ഉരുൾപൊട്ട ലിൽ മണ്ണിനടിയിലായി ഒട്ടേറെ പേരെ കാണാതായതായി സംശയിക്കു ന്നുവെന്ന് കല്പ്പറ്റ എം

കെ ശശീന്ദ്രൻ അറിയിച്ചു കോഴിക്കോട് വടകര വിലങ്ങാട് ഉരുൾപൊട്ടി മൂന്നുവീടുകൾ പൂർണ്ണമായും മണ്ണിനടിയി ലായി നാലുപേരെ കാണാതായി ഫയർ ഫോഴ്സിനും തഹസിൽദാർക്കും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും കാരണം സംഭവസ്ഥലത്ത് എത്താൻ കഴി ഞ്ഞിട്ടില്ല രുട്ടിട്ട്ട്ട്ട്ട്ട വയനാട് മേപ്പാടി പുത്തുമലയിൽ ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയ പത്തു പേരെ സൈന്യം രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രസേന രാത്രി പ്രദേശത്തെത്തി പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാ കുന്നുണ്ട് മുട്ടിമലയിൽ ഉരുൾപൊട്ടി പഴശിനഗർ കോളനിയിലെ സുമേഷ് ഭാര്യ പ്രീതു എന്നിവർ മരിച്ചു പരിക്കേറ്റ പ്രീതുവിന്റെ അച്ഛനെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുട്ടിൽ മലയിൽ മലയിടിഞ്ഞ് ഇവ രുടെ വീട് തകരുകയും മൂവരും മണ്ണിനടിയിൽപ്പെടുകയുമായിരുന്നു

വയനാട് ജില്ലയിലെ നിരവധി ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി

മൈസൂർ റോഡിൽ മണ്ണിടിച്ചിൽ കാരണം ഗതാഗതം തടസ്സപ്പെട്ടു

ജനങ്ങൾക്ക് സഹായമെത്തി ക്കാൻ പ്രധാനമന്ത്രിയോട് ആവശൃപ്പെടുമെന്ന് അദ്ദേഹം അറിയിച്ചു നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കല ക്ടർമാരുമായും സംസാരിച്ചുവെന്നും അദ്ദേഹം വാർത്താലേഖകരെ അറി യിച്ചു വയനാട്ടിൽ പോകാൻ പരിപാടിയുണ്ടെങ്കിലും ദുരിതാശ്ചാസ പ്രവർത്ത നങ്ങളെ ബാധിക്കുമെന്ന് കലക്ടർ പറഞ്ഞതായി രാഹുൽ വെളിപ്പെടുത്തി ദർവ്വഹിച്ച ജില്ലകളിൽ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും

ചിപ്പിലിതോടിനടുത്ത് മരുതിലാവിൽ ഉരുൾപൊട്ടലിൽ തലനാരിഴക്കാണ് രക്ഷാപ്രവർത്തനത്തിന് പോയ തഹസിൽദാറും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരുമടങ്ങിയ സംഘം രക്ഷപ്പെട്ടത് മഴ കനത്തോടെ അഞ്ച് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റാൻ ശ്രമി ക്കുന്നതിനിടെയാണ് ശക്തമായ ഉരുൾപൊട്ടലുണ്ടായത് ചെളിയും കല്ലുകളും മരങ്ങളും ഇരച്ചെത്തിയപ്പോൾ സംഘം ഓടിമാറുകയായിരുന്നു കോഴിക്കോട് ആറാംഗേറ്റിൽ റെയിൽപ്പാളത്തിന് മുകളിലേക്ക് ചെരിഞ്ഞുനിന്ന തെങ്ങിൽ ചെന്നൈ എഗ്മോർ ട്രെയിനിടിച്ചു ലൈൻ ക്ലിയറൻസ് ജീവനക്കാരും ആർ

എഫും ചേർന്ന് എട്ടുമണിയോടെ പാളത്തിലെ തടസ്സം നീക്കി ഗതാഗതം പുനസ്ഥാപിച്ചു വടകരയിൽ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു ചെമ്മരത്തൂർ തയ്യുള്ളതിൽ ലിബേഷ് ആണ് മരിച്ചത്

ശക്തമായ മഴയായതിനാൽ ദുരന്തനിവാരണ സേനക്ക് അടുക്കാനുമാവുന്നില്ല രക്ഷാപ്രവർത്തനം ഇന്നലെ രാത്രി പത്തരയോടെ നിർത്തി

ദർശ്ശാ കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴ പെയ്തു മലയോര പ്രദേശങ്ങൾ മിക്കതും ഒറ്റപ്പെട്ടു

ശ്രീകണ്ഠപുരം മേഖല യിൽ നിരവധി വീടുകൾ ഒറ്റപ്പെട്ടു ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ടെറി ട്ടോറിയൽ ആർമിയുടെ രണ്ട് സംഘം രംഗത്തിറങ്ങി

കോതമംഗലത്ത് കല്ലേലിമേട് തളവച്ചപ്പാറ എന്നിവിടങ്ങളിൽ അഞ്ച് സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടി ആലുവ പട്ടണത്തിന്റെ ചില ഭാഗങ്ങളിൽ വെള്ളംകയറി ആലുവ പറവൂർ കോതമം ഗലം മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടി യിലാണ് രുട്ടിട്ട്ട്ട്ട്ട്ട പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി സൈലന്റ് വാലി മണ്ണാർക്കാട് മംഗലം ഡാം മലമ്പുഴ മലയോര മേഖലകളിൽ പത്തിലധികം ഇടങ്ങളിൽ ഉരുൾ പൊട്ടി

അട്ടപ്പാടി ചുരം റോഡ് അടച്ചു നെല്ലിയാമ്പതിയിലേക്ക് ഗതാഗതവും തടസ്സപ്പെട്ടു കൽ പ്പാത്തി പുഴയിൽ കുടുങ്ങിയ ക്ഷേത്രം പണിക്കെത്തിയ ഏഴ് അന്യസംസ്ഥാ

ദർവ്വെടെട കോട്ടയം ജില്ലയിൽ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും നദികൾ കര കവിഞ്ഞൊഴുകി വ്യാപക കൃഷിനാശമുണ്ടായി കിഴക്കൻ പ്രദേശങ്ങൾ ഒറ്റ പ്പെട്ടു മീനച്ചിലാർ കരകവിഞ്ഞ് ഈരാറ്റുപേട്ട പാലാ പ്രദേശങ്ങളിൽ വെ ള്ളം കയറി

ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാ പിച്ചത്

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട അതിശക്തമായ മഴയിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും പ്രത്യേകിച്ച് വയനാട് മേപ്പാടിയിൽ ഗുരുതരമായ സ്ഥിതിയാണെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ പറഞ്ഞു

മേപ്പാടിയിൽ വൻ ഉരുൾപൊട്ട ലുണ്ടായിരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അവലോകന യോഗം ചേർന്ന ത് ഉരുൾപൊട്ടലിൽ രക്ഷാ പ്രവർത്തനം നടത്താൻ വ്യോമസേന ഹെലി കോപ്ടറുകൾ അയയ്ക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു എയർഫോഴ്സിന്റെ രാത്രി സഞ്ചരിക്കാവുന്ന ഹെലികോപ്ടറുകൾ അയയ്ക്കാനാണ് ആവശ്യ പ്പെട്ടതെന്നും മഴ അല്പമൊന്ന് ശമിച്ചാൽ അവിടെ എത്തിച്ചേരാനാകുമെന്നും രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും നോക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു നാശനഷ്ടങ്ങളുടെ ആഘാതം എത്രയുണ്ടെന്ന് കണ ക്കാക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മലപ്പുറം ജില്ലയിലെ ഒട്ടേറെ സ്ഥലങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടുപോയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പതിമൂവായിരം പേരെ സംസ്ഥാനത്ത് വിവിധ ക്യാമ്പു കളിലായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ചിലയാളുകൾ വീടുകളിൽ നിന്ന് ക്യാമ്പുക ളിലേക്ക് മാറാൻ വിമുഖത പ്രകടിപ്പിക്കുന്നുണ്ടെന്നും അപകടസാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറിത്താമസിക്കണമെന്നും മുഖ്യമന്ത്രി പറ ഞ്ഞു ജീവഹാനി ഒഴിവാക്കുകയാണ് ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി

കേര ള മഹാത്മാഗാന്ധി കാലിക്കറ്റ് കണ്ണൂർ ആരോഗ്യ സർവകലാശാലകൾ ഇന്നത്തെ പരീക്ഷകൾ മാറ്റിവെച്ചു

രുടെട്ട്ടെടു മഴയും മണ്ണിടിച്ചിലും കാരണം ചില ട്രെയിനുകൾ ഇന്ന് ഓടില്ലെന്ന് റെയിൽവെ അറിയിച്ചു ചണ്ഡീഗഡ് കൊച്ചുവേളി സമ്പർക്കക്രാന്തി എക്സ്പ്രസ് ശ്രാവണബൽഗോള വഴി പോകുന്ന മംഗലാപുരം സെൻട്രൽ യശ്ചന്ത്പൂർ എക്സ്പ്രസ് യശ്ചന്ത്പൂർ കാർവാർ ബംഗളുരു കാർവാർ എക്സ്പ്രസ് എന്നിവയാണ് റദ്ദാക്കിയത്

ഇന്നലെ രാത്രി ദൂരദർശനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാ യിരുന്നു പ്രധാനമന്ത്രി

ഇതെല്ലാം പാക്കിസ്ഥാൻ ഭീകരവാദം വളർത്താ നാണ് ഉപയോഗിച്ചതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു തൊഴിലവസരങ്ങൾ വർദ്ധി പ്പിക്കുന്നതിന് സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും വികസന പദ്ധതികളുടെ വേഗം കൂട്ടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സിക്ക് തകർപ്പൻ ജയത്തോടെ അരങ്ങേറ്റം ഇന്നലെ ചെന്നൈയിൻ എ ഫ് സി റിസർവ് ടീമിനെ എതിരില്ലാത്ത നാലു ഗോളിനാണ് ഗോകുലം തോൽപ്പി ച്ചത് ഇതോടെ ഗ്രൂപ്പ് ഡിയിൽ ഗോകുലത്തിന് മൂന്നുപോയിന്റായി

രദ്ദേഷ്ടങ സംസ്ഥാനത്തെ കായലുകളിലെ ചെളിയുൾപ്പെടെ മാലിന്യം നീക്കം ചെയ്യുന്നതിനായി നെതർലാൻഡ്സിൽ നിന്നും യന്ത്രം വാങ്ങുന്ന നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു